വെങ്കയ്യനായിഡു കോഴിക്കോട്ട് വിഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം ചെയ്യും

അതേസമയം തിങ്കളാഴ്ച ചേരാനിരുന്ന നിയമസഭാ സമ്മേളനം മാറ്റുന്ന കാര്യത്തിൽ നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം അന്തിമ തീരുമാനമെടുത്തേക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പ്രതിപക്ഷം ഗവൺമെന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് രുര സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ച നാലുപേർ കൂടി മരിച്ചതായി റിപ്പോർട്ട് കൊല്ലം കരുനാഗപ്പള്ളി കുലശേഖരപുരം സ്വദേശിനി റഹിയാനത്ത് കോഴിക്കോട് പള്ളിക്കണ്ടി സ്വദേശി കോയട്ടി കാസർകോട് അണങ്കൂർ സ്വദേശി ഖൈറുന്നീസ കണ്ണൂർ വിളക്കോട്ടൂർ സ്വദേശി സദാനന്ദൻ എന്നിവരാണ് മരിച്ചത്

തിരുവനന്തപുരം കൈമനം മന്നം മെമ്മോറിയൽ സ്കൂളിൽ പരീക്ഷ എഴുതിയ കൊല്ലം അഞ്ചൽ സ്വദേശിക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത് ഇതോടെ കോവിഡ് സ്ഥിരീകരിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം നാലായി രുമ ആലപ്പുഴയിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകളുടെ പ്രവർത്തന സമയം മൂന്ന് മണിക്കൂർ കൂടി നീട്ടി ജില്ലയിൽ നിന്നും ആർ

പട്ടാമ്പി താലൂക്കുമായി അതിർത്തി പങ്കിടുന്ന പുലാമന്തോൾ തിരുവേഗപ്പുറ പാലങ്ങൾ അടച്ചു രേര എറണാകുളം ജില്ലയിൽ കൊച്ചി നഗരസഭ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഡിവിഷനുകൾ ഏലൂർ ഡിവിഷൻ രണ്ട് കാലടി വാർഡ് അഞ്ച് ചേന്ദമംഗലം വാർഡ് ഒമ്പത് ശ്രീമൂലനഗരം വാർഡ് അഞ്ച് എന്നിവ ആരോഗ്യ വകുപ്പ് കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി ആലുവ നഗരസഭ കീഴ്മാട് കരുമാല്ലൂർ ആലങ്ങാട് ചൂർണിക്കര പഞ്ചായത്തുകൾ പൂർണ്ണ കണ്ടെയ്ൻമെന്റ് സോണുകളായിരിക്കും

ഇതിൽ രണ്ടു പേർ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ളവരാണ്

രുമ സമ്പർക്ക രോഗികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പട്ടാമ്പി മേഖലയിൽ കൂടുതൽ പ്രഥമതല ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് നടപടി തുടങ്ങി

രുദ കോവിഡ് ചികിത്സാ മേഖലയിലെ ഡോക്ടർമാരുടെ അനുഭവങ്ങളും ചികിത്സാ രീതികളും പങ്കു വെയ്ക്കുന്ന ദേശീയ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിലെ എയിംസിൽ ആരംഭിക്കും

രാജ്യത്തെയും വിദേശത്തെയും കോവിഡ് വിദഗ്ദ്ധരും മെഡിക്കൽ കോളേജുകളിലെ മുതിർന്ന ഡോക്ടർമാരും പരിപാടിയിൽ പങ്കെടുക്കും രോഗികളെ കൈകാര്യം ചെയ്യേണ്ട രീതിയും ഉരുത്തിരിയുന്ന പുതിയ മാർഗ്ഗ നിർദ്ദേശങ്ങളും ചികിത്സാ നയവും ഗവേഷണരംഗത്തെ പുതിയ വാർത്തകളും എല്ലാ ഡോക്ടർമാർക്കും ലഭ്യമാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം

സി വേണു ഗോപാലും ദിഗ് വിജയ് സിംഗ് ശരത് പവാർ എന്നിവരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും രാജസ്ഥാനിൽ നിന്നാണ് കെ

പാർലമെന്റ് ചേരാത്ത സാഹചര്യത്തിൽ രാജ്യസഭാ ചേംബറിൽ കോവിഡ് മാനദണ്ഡം പാലിച്ചാണ് ചടങ്ങ് രേര വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എം

പി വീരേന്ദ്രകുമാർ എ വെർച്വൽ ട്രിബ്യുട്ട് എന്ന അനുസ്മരണ പരിപാടി വൈകിട്ട് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു കോഴിക്കോട്ട് വിഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം ചെയ്യും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എം പി വീരേന്ദ്രകുമാർ എ ട്രൂ സെക്യൂലർ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻ പിള്ള കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി ജയറാം രമേഷ് സി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കമൽഹാസൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിക്കും രുഭ സ്വർണ്ണക്കടത്ത് കേസിൽ തെളിവുകൾ നശിപ്പിക്കാൻ സംഘടിത ശ്രമമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പ്രതിപക്ഷത്തിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി ജനശ്രദ്ധ തിരിച്ചു വിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സെക്രേട്ടറിയറ്റിലെ അനധികൃത നിയമനങ്ങളെക്കുറിച്ച് ചീഫ് സെക്രട്ടറി പട്ടിക പുറത്തു വിടണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു രുമ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രിക്കും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനുമെതിരെ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി തള്ളി

രുര രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം

കേരളാ ബുക്സ് ആന്റ് പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിലായിരുന്നു പുസ്തക വിതരണം രണ്ടാം വാല്യം പുസ്തകങ്ങളുടെ വിതരണം പുരോഗമിക്കുകയാണെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു രുമ വയനാട്ടിലെ കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് കാപ്പി കർഷക ഗ്രൂപ്പുകൾ രൂപീകരിക്കും ഇതിന് നടപടികൾ വേഗത്തിലാക്കാൻ മറ്റന്നാൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം ചേരും വന്യമ്യഗശല്യം പരിഹരിക്കാൻ വേലി നിർമ്മാണം നടത്താനും പദ്ധതി തയ്യാറാക്കി വരികയാണ് വന്യമൃഗശല്യം ഒഴിവാക്കാൻ ഓരോ പഞ്ചായത്തിലും ഓരോ ഏക്കർ സ്ഥലത്ത് അവയ്ക്കായി ഫലവൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കാനും പദ്ധതിയുണ്ട്

മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം ദേദ ഇന്ന് ദേശീയ മാമ്പഴ ദിനം രാജ്യത്തെ ആദ്യ നാട്ടു മാവ് പൈതൃക ഗ്രാമമായി കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം ഗ്രാമത്തെ ഇന്ന് പ്രഖ്യാപിക്കും ദരര പാലത്തായി പീഡന കേസന്വേഷണത്തിൽ നിന്ന് ഐ

ശ്രീജിത്തിനെ ഒഴിവാക്കി പുനരന്വേഷണം നടത്തണമെന്ന് ഐ

എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു